ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നതെന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രാജ്യത്ത് കോവിഡ് പ്രതിരോധ നടപടികൾ ഊർജ്ജിതം ന് കോവിഡ് മഹാമാരി പുതിയ ലോക ക്രമത്തിനും പുനർവിചിന്തനത്തിനും അവസരം നൽകിയെന്ന് റെയ്സിനാ സംവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പുത്തൻ പ്രതീക്ഷകളുമായി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വിഷു ആശംസകൾ നേർന്നു

വിദ്യാഭ്യാസപ്പർപ്പൂർ സ്ഥാപനപരവുമായ കരുത്ത് ലക്ഷ്യമാക്കിയാണ് പ്പിദ്ധ്ാഭ്യാസ നയം ആവിഷ്കരിച്ചത് വിദ്യാർത്ഥികളിൽ സ്വാശ്രായബോധം ശക്തമാക്കണം അവരുടെ പങ്കാളിത്തം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കണം യുവാക്കൾക്ക് നൈപുണൃ വികസനത്തിനായി രാജ്യമെമ്പാടും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ഇഛാശക്തി വളർത്തുന്നതിൽ അധ്യാപക സമൂഹത്തിന് സൂപ്രധാന പങ്കുവഹിക്കാനാവുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്ഥാപനപരമായ കരുത്ത് വിദ്യാർത്ഥികളുടെ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായകമാണ് വിദ്യാർത്ഥികളുടെ ശേഷിയും അഭിലാഷങ്ങളും ആവശൃം വേണ്ടുന്ന പിന്തുണയും മനസ്സിലാക്കി ഉചിത തീരുമാനങ്ങൾ എടുക്കാൻ അധ്യാപകർക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു അംബേദ്കറുടെ ഉദ്ബോധനങ്ങൾ രാജ്യത്തെ പൌരൻമാരെ വിജയപാതയിൽ എത്തിക്കാൻ സഹായിച്ചതായും ശ്രീ

കോവിഡ് പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ പരീക്ഷ മാറ്റിവയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിന്റെ തുടർന്നാണ് ചർച്ച

റയ്സീന ഡയലോഗിന്റെ ആറാം പതിപ്പ് വിർചലിലായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ പ്രശ് നങ്ങളെയും ഭാവിയിലെ വെല്ലുവിളികളെയും പരിഗണിക്കാവുന്ന തരത്തിലുള്ള വൃവസ്ഥ രൂപീകൃതമാകേണ്ടതിന്റെ ആവശൃകത പ്രധാനമന്ത്രി സൂചിപ്പിച്ചു

കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗവർണർമാരുടെ ഇടപെടൽ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യും കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു

സാമൂഹിക വിവേചനത്തിനും തിന്മകൾക്കുമെതിരെ അക്ഷീണം പ്രവർത്തിച്ച മഹാനായ നേതാവായിരുന്നു അംബേദ്ക്കർ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

പ്രതികൂല സാഹചര്യങ്ങളിൽ സ്വന്തം പാത വെട്ടിതുറന്ന് രാജ്യത്തിനും സമൂഹത്തിനും മഹദ് സംഭാവനകൾ നൽകി സഹപൌരൻമാർക്ക് പ്രചോദനം നൽകിയ മഹാത്മാവായിരുന്നു ബി

അംബേദ്ക്കറെന്ന് ശ്രീ

നീതിയുക്തവും പരമോന്നതവുമായ സമൂഹം കെട്ടിപ്പെടുക്കാനാണ് അംബേദ്ക്കർ പരിശ്രമിച്ചതെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഭരണഘടനാ ശിൽപിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഡോ

സമൂഹത്തിൽ പാർശ്വൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലെത്തിക്കാനുള്ള അംബേദ്ക്കറുടെ പോരാട്ടം തലമുറകൾക്ക് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

വിഷുവിന്റെ മംഗളൂ വേളയിൽ കേരളത്തിലെ എല്ലാ സഹോദരീ സഹോദരൻമ്മാർക്കുംട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ശുഭാശംസകൾ നേരുന്നതായി രാഷ്ട്രപതി ടിറ്ററിൽ കുറിച്ചു സന്തോഷ്ക്രമായ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ആരോഗ്പ്പിട്ടും സമാധാനവും സമൃദ്ധിയും പ്രദാനം ചെയ്യട്ടെയെന്നും ശ്രീ രിക്കാഥ് കോവിന്ദ് ആശംസിച്ചു

ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രി മലയാളത്തിൽ ട്വീറ്റ് ചെയ്തു

ഈ പുതുവർഷം എല്ലാവർക്കും ആയുരാരോഗ്യവും സന്തോഷവും തരുന്നതാകട്ടെയെന്ന് ശ്രീ നരേന്ദ്രമോദി ആശംസിച്ചു

എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച നാലാം ഘട്ട വോട്ടെടുപ്പിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളാണ് പ്രചാരണ സമയം വെട്ടിക്കുറയ്ക്കാൻ കാരണമായത്

ബിജെപ്പി ദേശീയ അധ്യക്ഷൻ ജെ

വാക്സിൻ ലഭ്യതയല്ല പ്രധാന പ്രശ്നമെന്നും വാക്സിനേഷൻ യജ്ഞത്തിനുളള സംസ്ഥാനങ്ങളുടെ ആസൂത്രണം മെച്ചപ്പെടേണ്ടതാണെന്നും സർക്കാർ വ്യക്തമാക്കി വാക്സിൻ സംഭരണ കേന്ദ്രങ്ങളുടെ ലഭ്യത സംസ്ഥാനങ്ങൾ പുനപരിശോധിക്കണമെന്നും അവ ആവശ്യമുളള വിവിധ പ്രദേശങ്ങളിലേക്ക് വിനിയോഗിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ യജ്ഞം തുടരുകയാണ്

കോവിഡ് വാക്സിനേഷനും കോവിഡ് പ്രതിരോധത്തിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്